മെൽബൺ ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ഒന്നാം ഇന്നിംഗ്സ് ലീഡ് അജിങ്കൃ രെഹാനയ്ക്ക് സെ ഞ്ചുറി

മൻ കി ബാത് ഇൻട്രോ നമ്മുടെ ഉല്പ്പന്നങ്ങൾ ലോകോത്തരമാണെന്ന് ഉറപ്പിക്കേണ്ട സമയമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ഇതിനായി നമ്മുടെ സംരംഭകരും സ്റ്റാർട്ടപ്പുകളും മുൻപോട്ടു വരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്ത് കോവിഡ് പ്രതിസന്ധിയിൽ നമ്മുടെ അദ്ധ്യാപകർ സ്വീക്രിച്ചിരിക്കുന്ന നൂതനമായ രീതികളും അവർ തയ്യാറാക്കിയ പഠനസ്ാമഗ്രികളും അമൂല്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഈ കോഴ്സ് മെറ്റീരിയൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ദീക്ഷ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് അദ്ധ്യാപകരോട് അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ വിദൂര പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനപ്രദമാകും

പുതുവർഷത്തിൽ ബീച്ചുകളും പർവ്വതങ്ങളും അടക്കമുള്ള പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയില്ല എന്ന ദൃഢപ്രതിജ്ഞ യെടുക്കണമെന്ന് പ്രധാനമന്ത്രി ്മൻ കി ബാതിലൂടെ ആഹ്വാനം ചെയ്തു

ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും നാം മോചനം നേടണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

സെഞ്ചുറിയുമായി ക്രീസിലുള്ള ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയുടെ മികവിലാണ് ഇന്ത്യ ഇന്നിംഗ്സ് ലീഡ് പിന്നിട്ടത്

എല്ലിൽ പ്രജ്ന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയെ നേരിടും

മൂന്ന് പോയിന്റുള്ള ടീം ഒമ്പതാം സ്ഥാനത്താണ് ഹൈദരാബാദ് ഏഴാം സ്ഥാനത്തുമാണ്